ഇന്ത്യ ശാന്തിയിലും സമാധാനത്തിലും വിശ്വസിക്കുന്നുവെന്നും എന്നാൽ രാജ്യസുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അനിശ്ചിതകാല സമരം പിൻവലിച്ചു ശബരിമലയിലെ സ്ത്രീ പ്രഖ്യേശ്നം സംബന്ധിച്ച ന് സുപ്രീംകോടതി വിധി ഉൾപ്പട്ടെയുള്ള വിഷയങ്ങൾ ചർച്ചചെയ്യാൻ നാളെ മുഖ്യമിന്തിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം

മാർട്ടിന് സമാപനം

ചെന്നൈ എഫ്

യെ നേരിടും ട്ടടടടടടടടടടടടടടട മൻകി ബാത് ഇന്ത്യ ശാന്തിയിലും സമാധാനത്തിലും വിശ്വസിക്കുന്നു എന്നും എന്നാൽ അതിനുവേണ്ടി രാജ്യത്തിന്റെ ആത്മാഭിമാനം അടയറ വയ്ക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വിപത്തിനെ നേരിടാനും വിജയം കൈവരിക്കാനുമുള്ള അഭിലാഷിന്റെ സ്ഥിരോത്സാഹം നമ്മുടെ രാജ്യത്തെ യുവ തലമുറയ്ക്ക് പ്രേരണയാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഗതാഗതമന്ത്രി എ

ശശീന്ദ്രനുമായി സംഘടനാ പ്രതിനിധികൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനു

സിംഗിൾ ഡ്യൂട്ടി പരിഷ്ക്കരണത്തില്ക് അ്പാകതകൾ പരിഹരിക്കാനായി വിദഗ്ധസമിതിയെ നിയോഗിക്കും

മുഖ്യമന്ത്രിയുടെയും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശത്തോടെയും പിന്തുണയോടെയും ഭക്തർക്കായി അടിസ്ഥാനസൌകര്യങ്ങളും ക്രമീകരണങ്ങളുമൊരുക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് എ

വിശദംശങ്ങളുമായി അർച്ചന വോയിസ് സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ ധാരാളമായി അയ്യപ്പസന്നിധാനത്ത് എത്തുമെന്ന് കരുതുന്നില്ലെന്നും അയ്യപ്പനിൽ വിശ്വാസമുള്ളവരും ആചാരാനുഷ്ടാനങ്ങൾ പാലിക്കുന്നവരുമാണ് ഭൂരിഭാഗംപേരും എന്നും ദേവസ്വം ബോർഡ് പ്രസിഡൻറ് വൃക്തമാക്കി ശബരിമല പമ്പ ബെയ്സ് പോയിന്റായ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഭക്തർക്കായി നിലവിൽ സജ്ജമാക്കിയ അടിസ്ഥാന സൌകര്യങ്ങളെയും ക്രമീകരണങ്ങളേയും സംബന്ധിച്ച് ദേവസ്വം ബോർഡ് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു

അതെ സമയം ശബരിമല വിഷയത്തിൽ മുഖ്യമന്തി വിളിച്ചുചേർത്തിരിക്കുന്ന ഉന്നതതല യോഗം നാളെ മുഖ്യമന്ത്രിയുടെ കോൺഫെറൻസ് ഹാളിൽ നടക്കും

ഇയാളെ ചോദ്യം ചെയ്തതിന്റ് പിന്നാലെ കാസർഗോഡ് തളങ്കരയിലെ വീട്ടിൽ എക്സൈസ് റെയ്ഡ് നടത്തി അര കിലോ സ്വർണ്ണം പിടിച്ചെടുത്തു ഗൃഹനാഥനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു

ഡി

ആന്റണിയാണെന്ന ഇടതുപക്ഷത്തിന്റെ പരാമർശം പിൻവലിക്കണം

ബ്രൂവറി അനുവദിച്ച തീരുമാനം കോടികളുടെ അഴിമതിയാണെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു

ഇടുക്കി ജില്ലയിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധൃത ഉള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു

മീ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ഇന്നു വൈകുന്നേരം വരെ മത്സൃത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് ഉണ്ട്

വിശദാംശങ്ങളുമായി ഇടുക്കി പ്രതീനിധി ആന്റണി മുനിയറ

ട്രാവൽ മാർട്ടിൽ പങ്കെടുക്കാൻ ലഭിക്കുന്ന അപേക്ഷകളിൽ പലതും സ്ഥലപരിമിതി കാരണം ഒഴിവാക്കേണ്ട അവസ്ഥയുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി കൂടുതൽ വിൽപ്പനക്കാരെ ഉൾപ്പെടുത്താൻ തക്കവിധമുള്ള വേദി അടുത്ത തവണ കണ്ടെത്തുന്ന കാര്യം ട്രാവൽ മാർട്ട് സൊസൈറ്റി പരിഗണിക്കണമെന്നും ശ്രീമതി

ചെക്ക്പോസ്റ്റ് നീലക്കുറിഞ്ഞി സീസണുമായി ബന്ധപ്പെട്ട് അന്തർ സംസ്ഥാന പാതയായ മറയൂർ ഉദുമൽപേട്ട റോഡിൽ മറയൂർ കരിമുട്ടിയിൽ ആർ

ട്ടടടടടടടടടടടടടടടട മനുഷ്യാവകാശ കമ്മീഷൻ ഒരാളിൽ നിന്നും ബാങ്ക് പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ ആവശ്യ പ്പെടുന്നപക്ഷം അടച്ച സംഖ്യയുടെ കൃത്യവും വിശദവുമായ കണക്കിന്റെ സ്റ്റേറ്റ്മെന്റ് നൽകണമെന്നത് ബാങ്കിന്റെ ന്യായമായ ഉത്തരവാദിത്വമാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അദ്ധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്

ട് ഫുട്ബോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ബംഗളുരു എഫ്

ചെന്നൈ എഫ്

യെ നേരിടും

മൃതദേഹത്തിന്റെ ഭാരം കണക്കാക്കി തുകനിശ്ചയിച്ച് കാർഗോ അയയ്ക്കുന്നതാണ് നിലവിലെ രീതി

കാസർഗോഡ് നായിക്കാപ്പിൽ നൌഷാദ് മൊഗ്രാൽ സ്വദേശി മുനീർ എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ സഞ്ചരിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്

കുട്ടികളുടെ സംരക്ഷണത്തിനായി ജില്ല നിയമ സേവന അതോറിട്ടി ആവിഷ്കരിച്ച സ്പേസ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദേഹം കുട്ടികൾ തങ്ങളുടെ കൈകളിൽ സ്റ്റ്രക്ഷിതരാണെന്ന വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അധ്യാപ്പക്കുംപരാജയമാണ്

മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് ദുരന്തനിവാരണ ഏജൻസി അറിയിച്ചു ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഖം രേഖപ്പെടുത്തി